ഓർഡി നറി ബസുകളിൽ മിനിമം ചാർജ് എട്ട് രൂപയായി

ഇന്ന് പ്രതിനിധ സമ്മേളനം

ഹസ്സൻ

ഓർഡി നറി ബസുകളിലെ മിനിമം നിരക്ക് എട്ടു രൂപയായി

വിദ്യാർത്ഥികളുടെ കൺസഷൻ നിരക്കിൽ ആദ്യ രണ്ടു ഫെയർസ്റ്റേജുകളിൽ മാറ്റമില്ല

ഓർഡിനറി സിറ്റി ഫാസ്റ്റ് എന്നിവയുടെ പുതുക്കിയ നിരക്ക് കെഎസ്ആർടിസി ഇന്നലെ പുറത്തിറക്കിയിരു ന്നു

മാണി ബജറ്റ് അവതരിപ്പിക്കുന്നതിനിടെയാണ് നിയമസഭയിൽ അനിഷ്ട സം ഭവങ്ങൾ ഉണ്ടായത് കോടതിയുടെ അനുമതിയോടെ കേസ് പിൻവ ലിക്കുന്നതിൽ ഗവൺമെന്റിന് എതിർപ്പില്ലെന്ന് കാണിച്ച് ഉത്തരവ് നേരത്തെ പുറപ്പെടുവിച്ചിരുന്നു ഇന്നലെ കേസിന്റെ പരിഗണനാ വേളയിലാണ് തിരുവനന്തപുരം ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയെ പബ്ലിക് പ്രോസിക്യൂട്ടർ കേസ് പിൻവലിച്ചിട്ടില്ലെന്ന് അറിയിച്ചത്

സിപിഐ സംസ്ഥാന സമ്മേളനത്തിന് മലപ്പുറത്ത് പതാക ഉയർന്നു വിവിധ കേന്ദ്രങ്ങളിൽ നിന്ന് എത്തിയ കൊടിമര പതാക സ്മൃതി ജാഥകൾ സമ്മേളന നഗരിയിൽ സംഗമിച്ചതോടെയാണ് നാലു ദിവസത്തെ സമ്മേളനത്തിന് തുടക്കം കുറിച്ചത് മുതിർന്ന സിപിഐ നേതാവ് പ്രൊഫ

മുഹമ്മദലി പതാക ഉയർത്തി ഇന്ന് രാവിലെ പ്രതിനിധി സമ്മേളനം സിപിഐ ദേശീയ ജനറൽ സെക്രട്ടറി എസ് സുധാകർ റെഡ്സി ഉദ്ഘാടനം ചെയ്യും എൽഡി എഫ് ഗവൺമെന്റിന്റെ രണ്ടു വർഷത്തെ ഭരണം സിപിഐഎമ്മുമായി നിലനിൽക്കുന്ന ഭിന്നതകൾ എൽഡിഎഫ് വിപുലീകരണം തുടങ്ങിയ വിഷയങ്ങൾ സമ്മേളനത്തിൽ ചർച്ചയാകും

പ്രതികളുടെ സ്വത്ത് പിടിച്ചെടുക്കാനും ബില്ലിൽ വൃവസ്ഥ ഉണ്ടായിരിക്കും പ്രധാനമന്ത്രിയുടെ തൊഴിലവസര സൃഷ്ടി പരിപാടി അടുത്ത മൂന്ന് വർഷം കൂടി വ്യാപിപ്പിക്കാനും മന്ത്രിസഭയുടെ സാമ്പ ത്തികകാരൃ സമിതി അനുമതി നൽകി

മുൻ കേന്ദ്രമന്ത്രി പി ചിദംബരത്തിന്റെ മകൻ കാർത്തി ചിദംബ രത്തിന്റെ അറസ്റ്റ് രാഷ്ട്രീയ പകപോക്കലാണെന്ന് ആരോപണം കേന്ദ്ര മന്ത്രി രവിശങ്കർ പ്രസാദ് നിഷേധിച്ചു തെളിവുകളും രേഖകളും സത്യം പുറത്തു കൊണ്ടുവരുമെന്ന് അദ്ദേഹം ന്യൂഡൽഹിയിൽ പറ ഞ്ഞു

ഇന്നലെ വൈകീട്ട് ഡൽഹി കോടതിയിൽ ഹാജരാക്കിയ കാർത്തി ചിദംബരത്തെ ഒരു ദിവസത്തെ സിബിഐ കസ്റ്റഡിയിൽ വിട്ടു പാലക്കാട് മണ്ണാർക്കാട്ട് യൂത്ത് ലീഗ് പ്രവർത്തകൻ സഫീറിന്റെ വധം രാഷ്ട്രീയ കൊലപാതകം തന്നെയാണെന്ന് കെപിസിസി പ്രസി ഡന്റ് എം

ഹസ്സൻ പാലക്കാട്ട് പറഞ്ഞു ഇതിനായി സിപിഐ മണ്ണാർക്കാട്ട് ഓഫീസിൽ ഗൂഢാലോചന നടന്നുവെന്നും ഹസ്സൻ വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു അട്ടപ്പാടിയിൽ ആദിവാസി യുവാവ് മധുവിന്റെ മരണത്തിൽ സമ ഗ്രാന്വേഷണം വേണമെന്നും മന്ത്രി എ

ബാലൻ രാജിവെക്കണ മെന്നും ആവശൃപ്പെട്ട് എബിവിപി മന്ത്രിയുടെ വസതിയിലേക്ക് നട ത്തുന്ന അവകാശ സംരക്ഷണ യാത്ര അഗളിയിൽ നിന്നു തുടങ്ങി ദേശീയ സെക്രട്ടറി ഒ നിധീഷ് യാത്ര ഉദ്ഘാടനം ചെയ്തു നാളെ പാലക്കാട്ട് മന്ത്രിയുടെ വസതിക്കു മുന്നിൽ യാത്ര സമാപിക്കും

മുണ്ടൂരിലാണ് ഈ വർഷത്തെ ഏറ്റവും കൂടിയ ചൂട്ട് രേഖപ്പെടുത്തി യത് സൂര്യാഘാത സാധ്യതകണക്കിലെടുത്ത് പകൽ സമയം തൊഴിൽ സമയക്രമീകരണം കർശനമാക്കിയിട്ടുണ്ട് വടക്കൻ കേരളത്തിൽ അടുത്ത മൂന്ന് ദിവസം അന്തരീക്ഷ താപ നില ശരാശരിയിൽ കൂടുതലാകാൻ സാധ്യതയുണ്ടെന്ന് കേന്ദ്രകാലാ വസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി ഇതിന്റെ അടിസ്ഥാനത്തിൽ ജന ങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ കണ്ണൂരിൽ ആവശ്യപ്പെട്ട ട്ടു സൂര്യപ്രകാശം നേരിട്ടേൽക്കുന്നത് ഒഴിവാക്കണമെന്നും നിർജ ലീകരണം തടയുന്നതിന് പുറത്തു പോകുന്നവർ കൂടിവെള്ളം കൂപ്പി യിൽ കരുതണമെന്നും ദുരന്തനിവാരണ വിഭാഗം നിർദേശം നൽകി ൃ കോഴിക്കോട്ട് ദേശീയ സീനിയർ വോളിബോൾ ചാമ്പ്യൻഷിപ്പിൽ കേരളാ പൂരുഷ ടീം ജേതാക്കളായി റെയിൽവെയ്സിനെ ഒന്നിനെ തിരെ മൂന്ന് സെറ്റുകൾക്ക് തോൽപ്പിച്ചാണ് കേരളാ ടീം കിരീടം നില നിർത്തിയത് മുൻ വർഷവും റെയിൽവെയ്സായിരുന്നു ഫൈന ലിൽ കേരളത്തിന്റെ എതിരാളികൾ നേരത്തെ വനിതാ വിഭാഗത്തിൽ റെയിൽവെയ്സ് കേരളാ ടീമിനെ രണ്ടിനെതിരെ മൂന്ന് സെറ്റൂകൾക്ക് തോൽപ്പിച്ച് ചാമ്പൃൻമാരായി തുടർച്ചയായ പത്താം തവണയാണ് റെയിൽവെയ്സ് ജേതാക്കളാകു ന്നത് ഐഎസ്എൽ ഫുട്ബോളിൽ കേരളാ ബ്ലാസ്റ്റേഴ്സ് സെമി കാണാതെ പുറത്തായി ഇന്നലെ മഡ്ഗാവിൽ എഫ്സി ഗോവ കൊൽക്കത്ത എ

കെയെ തോൽപ്പിച്ചതോടെയാണ് കേരളത്തിന്റെ സെമി സാധൃത നഷ്ടമായത്

രാത്രി എട്ടിനാണ് മത്സരം കേരള ഒളിമ്പിക്സ് അസോസിയേഷൻ ഭരണസമിതിയെ ഇന്ത്യൻ ഒളിമ്പിക്സ് അസോസിയേഷൻ പിരിച്ചുവിട്ടു

ആറു മാസത്തിനകം അസോ സിയേഷൻ തെരഞ്ഞെടുപ്പ് നടത്താൻ മറിയാമ്മ കോശി ചെയർപേ ഴ്സനും ടോണി ഡാനിയേൽ കൺവീനറുമായി അഞ്ചംഗ അഡ്ഹോക്ക് കമ്മറ്റിയെയും ദേശീയ അസോസിയേഷൻ നിയമിച്ചു പഞ്ചാബിലെ മൊഹാലിയിൽ അന്തർ സംസ്ഥാന് ബ്ലൈൻഡ് ക്രിക്കറ്റ് മത്സരത്തിൽ കേരളം ചാമ്പ്യൻമാരായി ഫൈനലിൽ ജാർഖ ണ്ഡിനെ ഒൻപത് വിക്കറ്റിന് പരാജയപ്പെടുത്തിയാണ് കേരളം വിജയി കളായത് പത്താമത് സംസ്ഥാന കോളജ് ഗെയിംസിന് കോഴിക്കോട്ട് ഇന്ന് തുടക്കമാകും

മൂന്ന് ദിവസത്തെ മത്സരങ്ങൾ ഇൻഡോർ സ്റ്റേഡിയത്തിൽ നാളെ മന്ത്രി എ

മൊയ്തീൻ ഉദ്ഘാടനം ചെയ്യും സംസ്ഥാനത്തെ മുഴുവൻ തരിശു നിലങ്ങളും ഏറ്റെടുത്ത് കൃഷി യിറക്കുമെന്ന് മന്ത്രി വി

സുനിൽകുമാർ പറഞ്ഞു പത്തനം തിട്ട ആറന്മുള പാടശേഖരത്തെ കൊയ്ത്തുത്സവം ഉദ്ഘാടനം ചെയ്യു കയായിരുന്നു മന്ത്രി

അനച്ചാൽമാതിരപ്പിളളി രാജന്റെ മകൻ എം

അരുൺ ദേവികുളം കൃഷിഭവനിലെ ക്ലാർക്ക് ആനച്ചൽ ആനന്ദ് ഭവനിൽ അരുൺ ആനന്ദ് എന്നിവരാണ് മരിച്ചത്

ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് കോഴിക്കോട് നഗരത്തിൽ കഞ്ചാവ് മൊത്ത വിതരണത്തിന് എത്തിക്കുന്ന സംഘത്തിലെ അംഗ മാണ് ഇയാളെന്ന് പൊലീസ് അറിയിച്ചു ഒമ്പതുവയസ്സുകാരിയായ മദ്രസാ വിദ്യാർത്ഥിനിയെ പീഡിപ്പി ച്ചുകൊന്ന കേസിൽ പ്രതിയുടെ വധശിക്ഷ ഹൈക്കോടതി ശരിവെ ച്ചു നിലമ്പൂർ പൂക്കോട്ടുപാടം ചുള്ളിയോട് അബ്ദുൾ നാസറിന് മഞ്ചേരി സെഷൻസ് കോടതി വിധിച്ച വധശിക്ഷയാണ് ഹൈക്കോ ടതി ശരിവെച്ചത്

കൊല്ലത്ത് നാടോടി സംഘം ഭിക്ഷാടനത്തിന് ഉപയോഗിച്ചു കൈക്കുഞ്ഞുങ്ങളെ ഡിഎൻഎ പരിശോധനയ്ക്ക് ശേഷം ജില്ലാ ചൈൽഡ് റസ്ക്യൂ ടീം മഹാരാഷ്ട്ര അമരാവതി ചൈൽഡ് വെൽഫെ യർ കമ്മറ്റിക്ക് കൈമാറി ഒന്നരിവയസുകാരിയേയും എട്ട് മാസം പ്രായമായ ആൺകുഞ്ഞിനെയും റെസ്ക്യൂ ടീം കണ്ടെത്തി ജില്ലാ ശിശുക്ഷേമ സമിതിക്ക് കൈമാറിയതിന് ശേഷമാണ് നടപടികൾ പൂർത്തീകരിച്ചത് കണ്ണൂർ സർവകലാശാല കലോത്സവത്തിന്റെ ആദ്യ ദിവസത്തെ മത്സരങ്ങളിൽ പയ്യന്നൂർ കോളജ് മുന്നിലെത്തി കാസർകോട് ഗവൺമെന്റ് കോളജാണ് രണ്ടാം സ്ഥാനത്ത് സ്റ്റേജിതര മത്സരങ്ങൾ ഇന്നും തുടരും പാലക്കാട് ജില്ലയിലെ മണപ്പുള്ളിക്കാവ് വേലയും ഒറ്റപ്പാലം ചിന ക്കത്തൂർ പൂരവും ഇന്ന് ആഘോഷിക്കും ആഘോഷങ്ങളുടെ ഭാഗ മായി പാലക്കാട് താലൂക്ക് പരിധിയിലും ഒറ്റപ്പാലം നഗരസഭ ലക്കിടി പേരൂർ പഞ്ചായത്ത് പരിധികളിലും ജില്ലാ കലക്ടർ ഗവൺമെന്റ് ഓഫീസുകൾക്കും വിദ്യാലയങ്ങൾക്കും പ്രാദേശിക അവധി പ്രഖ്യാ പിച്ചു

സിവിൽ സപ്ലൈസ് മാനേജിങ്ങ് ഡയറക്ടറുടെ സാന്നിദ്ധ്യത്തിലാണ് ചർ ച

പ്രധാനമന്ത്രി ആവാസ് യോജനയിൽ അനുവദിച്ചു വീടുകളുടെ പൂർത്തീകരണത്തിൽ സംസ്ഥാനത്ത് പത്തനംതിട്ട ജില്ല ഒന്നാം സ്ഥാന ത്തെത്തി

മലയാളമുൾപ്പടെ വിവിധ ഭാഷകളിലെ എട്ട് ചിത്രങ്ങൾ മേള യിൽ പ്രദർശിപ്പിക്കും

പണിസ്ഥലത്ത് കരാറുകാരൻ എത്തിച്ച ഉച്ചഭക്ഷണം കഴിച്ച പത്തോളം പേർക്കാണ് ആരോഗൃപ്രശ്നങ്ങൾ അനുഭവപ്പെട്ടത്